ബിജെപി സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റ്ട്ടുക്കാൻ ആവ ശ്യപ്പെട്ടാൽ സ്വീകരിക്കുമെന്ന് കുമ്മനം രാജശേഖരൻ ഭരണമുന്നണിക്ക് ഉപതെരഞ്ഞെടുപ്പിൽ മേൽക്കോയ്മ സാഭാ വികമെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പളളി രാമചന്ദ്രൻ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച തിരുവനന്തപുരം മേയർ വി കെ പ്രശാന്തും കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ടി ജെ വിനോദും ഇന്ന് രാജി നൽകും പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് നാളെ താനൂരിൽ യൂത്ത്ലീഗ് പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ച സംഭവ ത്തിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ഐഎസ്എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യൂണൈ റ്റഡ് ഇന്ന് ഒഡീഷയെ നേരിടും ഹരിയാനയിൽ നേതാവിനെ തെരഞ്ഞെടുക്കാൻ ബിജെപി നിയമസഭാകക്ഷി യോഗം ആരംഭിച്ചു മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ വീണ്ടും നേതാവായി തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് റിപ്പോർട്ട് ഡൽഹിയിൽ മുതിർന്ന പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തി രാവിലെ ഛണ്ഡിഗഡിൽ തിരിച്ചെത്തിയ അദ്ദേഹം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് യോഗത്തിന് ശേഷം ഖട്ടർ ഗവർണർ സത്യദേവ് നാരായൺ ആര്യയെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശം ഉന്നയി ക്കും ജെജെപി നേതാവ് ദുഷ്യന്ത് ചൌതാല ഉച്ചകഴിഞ്ഞ് ഗവർണറെ കണ്ട് ബിജെപിക്ക് പിന്തുണ നൽകുന്ന കത്ത് സമർപ്പിക്കും ദുഷ്യന്ത് ചൌതാല പുതിയ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയാകു മെന്നും റിപ്പോർട്ടുകൾ പറയുന്നു

ഭൂരിപക്ഷത്തിന് ആറംഗങ്ങളുടെ കുറവ് ഉണ്ടായ സാഹചര്യത്തിലാണ് ജെജെപിയുമായി ബിജെപി ധാരണയുണ്ടാക്കിയത് മഹാരാഷ്ട്ര ഹരിയാന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ജനങ്ങൾ മോദി ഗവണ്മെന്റിനെ ക്ലൈപിട്ട് തുടങ്ങിയ തിന്റെ തെളിവാണെന്ന് കെപിസിസി വർക്കിംഗ് പ്രസീഡന്റ് കൊടി ക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു ജന്നങ്ങൾ നേരിടുന്ന പ്രശ്ന ങ്ങൾ വർഗീയതയും മതഭ്രാന്തും കൊണ്ട് മറികടക്കാമെന്നാണ് ബിജെപി ധരിക്കുന്നതെങ്കിൽ തക്ക സമയത്ത് വോട്ടർമാർ പ്രതിക രിക്കുമെന്നതിന്റെ ഉദാഹരണമാണ് തെരഞ്ഞെടുപ്പിലെ ബിജെപി യുടെ തകർച്ചു പ്രതിപക്ഷ പാർട്ടികളെ അട്ടിച്ചമർത്തിയിട്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പ്പോലും അവസരം നൽകാതെ ഭരണയന്ത്രം ദുരു പയോഗം ചെയ്തിട്ടും ബിജെപിക്ക് കനത്ത തിരിച്ചടിയാണുണ്ടായ തെന്ന് അദ്ദേഹം വാർത്താകുറിപ്പിൽ അറിയിച്ചു ബിജെപിയുടെ ്പുതിയ സംസ്ഥാന അധ്യക്ഷനെ പാർട്ടി കേന്ദ്ര നേതൃത്പം തീരുമാനിക്കുമെന്നും സ്ഥാനം ഏറ്റെടുക്കാൻ ആവശ്യ പ്പെട്ടാൽ സ്വീകരിക്കുമെന്നും മുതിർന്ന നേതാവ് കുമ്മനം രാജശേ ഖരൻ പറഞ്ഞു പാർട്ടിക്ക് അതിന്റെതായ കീഴ്വഴക്കങ്ങളും നിയ മങ്ങളും ഭരണഘടനയും നിലവിലുണ്ടെന്നും അതനുസരിച്ച് തീരു മാനമെടുക്കുമെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു

വട്ടിയൂർക്കാവിലേതുൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പൂകളിലെ പരാ ജയം പാർട്ടി പരിശോധിച്ച് വീഴ്ചകൾ തിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമച ന്ദ്രൻ പറഞ്ഞു വട്ടിയൂർക്കാവിൽ സി

എമ്മിന്റെയും ബി ജെ പി യുടെയും രഹസ്യധാരണയെക്കുറിച്ച് വിവരം ലഭിച്ചിരുന്നുവെന്നും ബി ജെ പിയുടെ വോട്ട് എവിടെപോയി എന്നതിന് മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ എൻ

ഒ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുല്ലപ്പള്ളി ഇ ന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടി ഉദ്ഘാടനം ചെയ്യും കോന്നി ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പത്തനംതിട്ട ഡിസിസിക്ക് വീഴ്ച പറ്റിയെന്നും ഡിസിസിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചില്ലെന്നും കോൺഗ്രസ് നേതാവ് അടൂർപ്രകാശ് എം പി പറഞ്ഞു എവിടെയാണ് തെറ്റ് സംഭവിച്ചതെന്ന് പാർട്ടി പരി ശോധിക്കണമെന്ന് അദ്ദേഹം തിരുവനുന്തപുരത്ത് ആവശ്യപ്പെട്ടു ജില്ലാ കോൺഗ്രസ് കമ്മറ്റി തുടരണ്മോ എന്ന് തീരുമാനിക്കേണ്ടത് കെപിസിസിയാണ് അവസരം കിട്ടിയാൽ ഡിസിസിയുടെ വീഴ്ച കൾ പാർട്ടിക്കുള്ളിൽ തുറന്നു പ്റയുമെന്നും അടൂർപ്രകാശ് വൃക്ത മാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ താൻ സജീവമായി പങ്കെടുത്തി രുന്നുവെന്നും പ്രവർത്തനത്തിൽ നിന്ന് ഒളിച്ചോടിയെന്ന പ്രചാരണം ശരിയല്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു വട്ടിയൂർക്കാവിലും കോന്നി യിലും കോൺഗ്രസിന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതേസമയം കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മറ്റിക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ഡിസിസി പ്രസിഡന്റ് ബാബു ജോർജ്ജ് പറഞ്ഞു ജില്ലാ നേതൃത്വം ശരിയായി പ്രവർത്തി ച്ചോ എന്ന് പറയേണ്ടത് കെപിസിസി നേതൃത്വമാണ് ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥി ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ലെന്നും കലക്കവെള്ള ത്തിൽ മീൻപിടിക്കാനാണ് ചിലരുടെ ശ്രമമെന്നും അദ്ദേഹം മാധ്യമ ങ്ങോട് പറഞ്ഞു തിരുവനന്തപുരം മേയർ വി കെ പ്രശാന്തും കൊച്ചി കോർപ്പറേ ഷൻ ഡെപ്യൂട്ടി മേയർ ടി ജെ വിനോദും ഇന്ന് രാജി സമർപ്പിക്കും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇരു വരും രാജിവെയ്ക്കുന്നത് വി കെ പ്രശാന്തും ടി ജെ വിനോദും കോന്നിയിൽ നിന്നും വിജ യിച്ച കെ യു ജനീഷ്കുമാർ അരൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഷാനിമോൾ ഉസ്മാൻ മഞ്ചേശ്വരത്തിൽ നിന്ന് വിജയിച്ച എം സി കമറുദ്ദീൻ എന്നിവരും മറ്റന്നാൾ നിയമസഭാ അംഗങ്ങളായി സത്യ പ്രതിജ്ഞ ചെയ്യും

കമ്യൂണിസ്റ്റുകൾ പ്പേദത്തെ കുറിച്ചും ഉപനിഷത്തുക്കളെക്കുറിച്ചും സൃസാരിക്കുന്നത് അതിന്റെ സ്വാധീനത്തെക്കുറിച്ചും ദുഃസ്വാധീനത്തെക്കുറിച്ചും അറിയാൻ കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് നാളെ

പ്രധാ നമന്ത്രിയുടെ പ്ര്യഭാഷണം പൂർത്തിയായാലുടൻ ഇതിന്റെ മലയാള പരിഭാഷ ക്രേള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും രാത്രി എട്ടിന് ഇതിന്റെ പുനഃസംപ്രേഷണം കേൾക്കാം താനൂർ അഞ്ചുടിയിൽ യൂത്ത്ലീഗ് പ്രവർത്തകൻ ഇസ്ഹാഖ് വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ പൊലീസ് കസ്റ്റഡിയിലുളള മൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി

വ്യാഴാഴ്ച രാത്രി അഞ്ചുടി ജുമാമസ്ജിദിലേക്ക് നമസ്കാരത്തിന് പോകുന്ന വഴിയാണ് ഇസ്ഹാഖ് വെട്ടേറ്റു മരിച്ചത് കോഴിക്കോട് കൂടത്തായ് കൊലപാതക കേസിൽ പ്രധാന പ്രതി ജോളിയെ ഇന്ന് കൊയിലാണ്ടി കോടതിയിൽ ഹാജരാക്കും പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നത്

പ്രതിഭാഗത്തിന്റെ കസ്റ്റഡി അപേക്ഷയും ഇന്ന് പരിഗണിക്കും നിലവിൽ സിലി മരണപ്പെട്ട കേസിൽ കസ്റ്റഡിയിലുള്ള ജോളിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ വടകര തീരദേശ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു സംസ്ഥാനത്തെ എട്ട് ജില്ലകളിൽ ഇന്ന് കനത്തമഴയ്ക്ക് സാധ്യ തയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണക്കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർകോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപി ച്ചത് നാളെ കാസർകോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ടായിരിക്കും അറബി കടലിലും ബംഗാൾ ഉൾക്കടലിലും ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് ഉള്ളതിനാൽ മത്സ്യബന്ധന് ബോട്ടുകൾ മിക്കതും ബേപ്പൂർ ഹാർബറിൽ തിരിച്ചെത്തി പുറ്ംകടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരി ക്കുന്ന ബോട്ടുകൾ ഏറ്റവും അടുത്തുള്ള ഹാർബറിൽ പ്രവേശിക്കണമെന്ന് നിർദേശം ഉള്ളതിനാൽ കാർവാർ മലപ്പ മംഗളുരു ഗോവ തുടങ്ങിയിടങ്ങളിൽ ഹാർബറുകളിൽ അടുപ്പിച്ചതായും റിപ്പോർട്ടു ണ്ട് ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷയെ നേരിടും ഗുവാഹതി ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം നാളെ ദീപാവലി തിന്മയുടെ മേൽ നന്മയുടെ വിജയം ആഘോ ഷിക്കുന്ന ഉത്സവമാണ് ദീപാവലി

മൺവിളക്കുകൾ തെളിയിച്ചും പടക്കം പൊട്ടിച്ചും മധുരപല ഹാരങ്ങൾ വിതരണം ചെയ്തും രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ജനങ്ങൾ ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമാകും

എസ് സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരം റീജ്യണൽ കാൻസർ സെന്ററിനരികിൽ നിർമ്മിച്ച സാന്ത്രന കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ആതുരസേവന മേഖല യിൽ എസ്

എസിന്റെ ഇടപെടൽ മാതൃകാപരമാണെന്ന് മുഖ്യ മന്ത്രി പറഞ്ഞു പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് പ്രായിപൂർത്തിയാകാത്ത സഹോദരിമാർ പീഡനത്തിനിരയായി ദുരൂഹ് സാഹ്ചര്യത്തിൽ മരിച്ച കേസ് പോലീസും പ്രോസിക്യൂഷനും ചേർന്ന്അട്ടിമറിച്ച് പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിച്ചതായി ബി ജെ

കേസിൽ ഉന്നതതല അന്ധിഷണം വേണമെന്നും പൊലീസ് അപ്പീൽ പോകാത്ത പക്ഷം കൂട്ടികളുടെ അമ്മയ്ക്ക് പാർട്ടി നിയമസഹായം ഒരുക്കുമെന്നും ബി

പി സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാർ ജില്ലാ പ്രസിഡണ്ട് ഇ കൃഷ്ണദാസ് എന്നിവർ പാലക്കാട്ട് വാർത്താ സ്മ്മേളനത്തിൽ അറിയിച്ചു സിറാജ് തിരുവനന്തപുരം ബ്യൂറോ ചീഫ് കെ എം ബഷീർ ശ്രീറാം വെങ്കിട്ടരാമന്റെ കാറിടിച്ച് മരിച്ച കേസിൽ അന്വേഷണം വൈകുന്നതിൽ ്തിരുവനന്തപുരം മൂന്നാം ജുഡീഷ്യൽ ഫസ്റ്റ്ക്കാസ് മജിസ്ട്രേറ്റ് കോടതി അതൃപ്തി അറിയിച്ചു

കൊല്ലം ജില്ലയിലെ പ്രമുഖ സ്വാതന്ത്യ സമരസേനാനി കരുനാഗപ്പള്ളി ആദിനാട് മരങ്ങാട്ട് പത്മനാഭൻ അന്തരിച്ചു

തൃശൂർ അഴീക്കോട് അഴിമുഖത്ത് മത്സ്യ ബന്ധന ബോട്ട് മുങ്ങി ഒരാൾ മരിച്ചു

അഴീക്കോട് നിന്നും രാവിലെ മത്സ്യ ബന്ധനത്തിന് പോയ സീ കിംഗ് എന്ന ബോട്ടാണ് അപകടത്തിൽ പെട്ടത് കണ്ണൂർ മാട്ടൂൽ പുറം കടലിൽ കേടായി കിടന്ന ബോട്ടിലെ തൊഴിലാളികളെ രക്ഷപ്പെടുത്തി പൂജ എന്ന ബോട്ടിലെ ഏഴ് തൊഴിലാളികളെയാണ് രക്ഷപ്പെടുത്തിയത്

വ്യാപാരി വ്യവസായി ഏകോപനസമിതി സംസ്ഥാന വ്യാപക മായി ചൊവ്വാഴ്ച കടകൾ അടച്ച് പണിമുടക്കും വാറ്റ് നിയമത്തിന്റെ പേരിൽ ഗവൺമെന്റ് വ്യാപാരികളെ ചൂഷണ് ം ചെയ്യുന്നതായി ആരോപിച്ചാണ് പണിമുടക്ക് കരിപ്പൂരിൽ വലിയ വിമാനങ്ങളുടെ സർവ്വീസ് പുനരാരംഭിക്കു ന്നതിന്റെ ഭാഗമായി എയർഇന്ത്യയുടെ ഉന്നതതല സംഘം വിമാന ത്താവളത്തിൽ അന്തിമ പരിശോധന ന്നടത്തി ഡയറക്ടറേറ്റ് ജന റൽ ഓഫ് സിവിൽ ഏവിയേഷ്ൻ ഉന്നയിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്താനായിരുന്നു പരിശോധന്ന് ഡിസംബറോടെ വലിയ വിമാന ങ്ങളുടെ സർവീസ് തുടങ്ങാനാകുമെന്ന് അധികൃതർ ഉറപ്പുനൽകി യതായി എം കെ രാഘവൻ എം പി കോഴിക്കോട്ട് അറിയിച്ചു വയനാട് മാനുന്തവാടിയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തി ലേക്ക് നിർമ്മിക്കുന്ന നിർദ്ദിഷ്ട നാലുവരി പാതയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത അവലോക്ന ്യോഗത്തിൽ അവതരിപ്പിച്ചു